ഐ എം നേതൃത്വം

കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കും വാർത്തകൾ വിശദമായി കോവിഡ് സാഹചര്യം അവലോകനം ചെയ്യാനും വാക്സിൻ വിതരണ പദ്ധതിയ്ക്ക് രൂപം നൽകാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ഓൺലൈനിൽ ചർച്ച നടത്തിയേക്കും കോവിഡ് രൂക്ഷമായ എട്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ആദ്യഘട്ടത്തിലും മറ്റ് സംസ്ഥാനങ്ങളുമായി രണ്ടാം ഘട്ടത്തിലുമായിരിക്കും പ്രധാനമന്ത്രിയുടെ ചർച്ചയെന്നാണ് റിപ്പോർട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളുമായും അദ്ദേഹം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും കോവിഡ് സാഹചര്യം സംബന്ധിച്ച് മുമ്പും പല തവണ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു

രുര കോവിഡ് ദുരിതത്തെ മനുഷ്യരാശി വൈകാതെ അതിജീവിക്കുമെന്നും നിയമങ്ങൾ പാലിച്ച് ജാഗ്രതയോടെ അതുവരെ കാത്തിരിക്കണമെന്നും വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ ആകാശവാണിയോട്

അടുത്ത വർഷത്തെ ഉച്ചകോടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഇറ്റലിയെ തെരഞ്ഞെടുത്തതിനെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു

ലോകം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങൾ തിരിച്ചറിയാനും രാജ്യങ്ങൾ തമ്മിൽ ഐക്യവും സഹകരണവും ഉറപ്പാക്കണമെന്നും ഇതിനായി ആഗോള കർമ്മ പരിപാടി രൂപപ്പെടുത്തണമെന്നും ഉച്ചകോടിയിൽ പങ്കെടുത്ത ആഗോള നേതാക്കൾ സംയുക്ത പ്രഖ്യാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് രും പാർലമെന്റ് അംഗങ്ങൾക്കായി നിർമ്മിച്ച ബഹുനില ഫ്ലാറ്റ് സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും

രും ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക്കിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവെയ്പ് നടത്തിയതായി സൈനിക വക്താവ് അറിയിച്ചു

അതിനിടെ ജമ്മു കശ്മീരിലെ അതിർത്തി ജില്ലയായ സാംബയിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം ഭൂഗർഭ തുരങ്കം അതിർത്തി രക്ഷാ സേന കണ്ടെത്തി കഴിഞ്ഞ വ്യാഴാഴ്ച നാഗ്രോഡയ്ക്ക് സമീപം സൈന്യവുമായി ഏറ്റുമുട്ടി മരിച്ച നാല് ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാർ ഈ തുരങ്കം വഴിയായിരിക്കാം നുഴഞ്ഞു കയറിയതെന്ന് സംശയിക്കുന്നു

നിയമ ഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിനോ എതിരെ ഒരു തരത്തിലും ഉപയോഗപ്പെടുത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിരുന്നു

സ്ഥാനാർത്ഥി നിർദ്ദേശകൻ തെരഞ്ഞെടുപ്പ് ഏജന്റ് എന്നിവർക്കാണ് പത്രിക പിൻവലിക്കാൻ നോട്ടീസ് നൽകുന്നതിന് അധികാരം

സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം സംബന്ധിച്ച നടപടികളും ഇന്ന് പൂർത്തിയാകും രംഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വോട്ടെടുപ്പിന് തലേന്ന് വൈകിട്ട് മൂന്നുവരെ ആരോഗ്യവകുപ്പ് നൽകുന്ന പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്നത് ഇതിനായി ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടെ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരെ നിയോഗിക്കും ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി രോഗികൾക്ക് ബാലറ്റും സമ്മതിപത്രവും ഉൾപ്പെട്ട കവറുകൾ നൽകും വോട്ട് ചെയ്ത ശേഷം ബാലറ്റും സമ്മതിപത്രവും കവറിലാക്കി ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകണം ആരോഗ്യവകുപ്പ് പട്ടിക നൽകിയ ശേഷം കോവിഡ് സ്ഥിരീകരിക്കുന്നവർക്ക് പി

ഇ കിറ്റ് ധരിച്ച് പോളിംഗ് സ്റ്റേഷനിലെത്തി അവസാന ഒരു മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്താനും അവസരം നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു

പോസ്റ്റർ പ്രചരണത്തെ സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിന് കാരണമായതെന്ന് പൊലീസ് അറിയിച്ചു

രുര തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ രൂപം കൊണ്ട ഗതി ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ നാളെ മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

വ്യക്തിപരവും സർവ്വീസ് സംബന്ധവുമായ പ്രശ്നങ്ങൾ സംസ്ഥാന പൊലീസ് മേധാവിയെ ഓൺലൈനിൽ അറിയിച്ച് പരിഹാരം സാധ്യമാക്കുന്ന പദ്ധതിയാണിത് കണ്ണൂർ ഇടുക്കി ജില്ലകളിലെ പരാതികളാണ് വ്യാഴാഴ്ച പരിഗണിക്കുന്നത്